തമിഴ്നാട്ടിൽ ഡിഎംകെ ഭരണം തിരിച്ചുപിടിച്ചു പുതുച്ചേരിയിൽ ബിജെപി സഖ്യം അധികാരത്തിലേക്ക്

ബാലകൃഷ്ണ പിള്ള അന്തരിച്ചു

വാർത്തകൾ വിശദമായി സംസ്ഥാനത്ത് പുതിയ ഗവൺമെന്റ് രൂപീകരിക്കുന്നതിന് സിപിഐഎമ്മും എൽഡിഎഫും ഇന്ന് ചർച്ച ആരംഭിക്കും പുതിയ മന്ത്രിസഭാ രൂപീകരണത്തിന്റെ ഭാഗമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് ഗവൺമെന്റിന്റെ രാജി സമർപ്പിക്കും രാവിലെ പത്തിന് മന്ത്രിസഭാ യോഗത്തിന് ശേഷമായിരിക്കും മുഖ്യമന്ത്രി ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെ കണ്ട് രാജിക്കത്ത് നൽകുക രുഭ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്ന നാലു സംസ്ഥാനങ്ങളിൽ മൂന്നിടത്തും ഭരണ കക്ഷികൾ അധികാരം നിലനിർത്തി കേരളം പശ്ചിമ ബംഗാൾ അസം സംസ്ഥാനങ്ങളിൽ ഭരിക്കുന്ന പാർട്ടികൾ തുടർഭരണം നേടിയപ്പോൾ തമിഴ്നാട്ടിൽ ഡിഎംകെ ഭരണം തിരിച്ച് പിടിച്ചു കേന്ദ്രഭരണ പ്രദേശമായ പുതുച്ചേരിയിൽ കോൺഗ്രസിനെ തോൽപ്പിച്ച് ബിജെപി സഖ്യം അധികാരം ഉറപ്പാക്കി കേരളത്തിൽ വൻ ഭൂരിപക്ഷത്തോടെയാണ് എൽഡിഎഫ് തുടർഭരണം നേടിയത്

കഴിഞ്ഞ തവണ നേമത്ത് വിജയിച്ച് നിയമസഭയിൽ അക്കൌണ്ട് തുറന്ന ബിജെപിക്ക് നേമം പാലക്കാട് തൃശൂർ മണ്ഡലങ്ങളിൽ ശക്തമായ പോരാട്ടം കാഴ്ച്ചവെക്കാൻ കഴിഞ്ഞെങ്കിലും ഒരിടത്തും ജയിക്കാനായില്ല ഇത്തവണ സീറ്റ് ഗണ്യമായി വർദ്ധിപ്പിക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന പാർട്ടിക്ക് ഇത് വൻ തിരിച്ചടിയായി

കേരളാ കോൺഗ്രസ് എം അഞ്ച് സീറ്റിലും എൻസിപിയും ജനതാദൾ എസും രണ്ട് വീതവും കോൺഗ്രസ് എസ് ഐഎൻഎൽ ജനാധിപത്യ കേരളാ കോൺഗ്രസ് കേരളാ കോൺഗ്രസ് ബി ലോക്താന്ത്രിക് ജനാതാദൾ നാഷണൽ സെക്യുലർ കോൺഫ്രൻസ് എന്നിവർ ഓരോ സീറ്റിലും എൽഡിഎഫ് പിന്തുണച്ച കക്ഷി രഹിതർ ആറ് സീറ്റിലും വിജയിച്ചു

രുഭ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കണക്കുകൾ പ്രകാരം സംസ്ഥാനത്ത് വോട്ടിങ്ങ് ശതമാനത്തിൽ സിപിഐഎമ്മിനും കോൺഗ്രസിനും ലഭിച്ച വോട്ടുകളിൽ വലിയ അന്തരമില്ല

കക്ഷി രഹിതരും രാഷ്ട്രീയ സെക്കുലർ മജിലിസ് പാർട്ടിയും ഓരോ സീറ്റ് നേടി കോൺഗ്രസ് സിപിഐഎം സഖ്യത്തിന് ഒരിടത്തും ജയിക്കാനായില്ല ദേദ തമിഴ്നാട്ടിൽ ഡിഎംകെ സഖ്യം ഒരിടവേളക്ക് ശേഷം അധികാരത്തിൽ തിരിച്ചെത്തുകയാണ്

അഞ്ചിടത്ത് മുന്നിലാണ്

പിസികെ പട്ടാണിമക്കൾ കച്ചി നാലു സീറ്റുകളിൽ വീതം വിജയിച്ചു പിഎംകെ ഒരു സീറ്റിൽ ലീഡ് ചെയ്യുകയാണ്

മൂന്ന് സീറ്റുകൾ ലഭിച്ച ബിജെപി ഒരിടത്ത് മുന്നിലാണ് ദേദ അസമിൽ ബിജെപി നേതൃത്വം നൽകുന്ന എൻഡിഎ അധികാരം നിലനിർത്തി

സഖ്യകക്ഷിയായ അസം ഗണപരിഷത്ത് ഒൻപത് സീറ്റും യുപിപിഎൽ ആറ് സീറ്റും നേടി

യുണൈറ്റഡ് പീപ്പിൾസ് പാർട്ടി ലിബറൽ ആറും ബോഡോലാന്റ് പീപ്പിൾസ് ഫ്രന്റ് നാലും സിപിഐഎമ്മും കക്ഷി രഹിതരും ഓരോ സീറ്റും നേടി ദേദ പുതുച്ചേരിയിൽ ഓൾ ഇന്ത്യ എൻആർ കോൺഗ്രസ് ബിജെപി സഖ്യം അധികാരത്തിലേക്ക്

കനത്ത തിരിച്ചടി ഏറ്റുവാങ്ങിയ ഭരണകക്ഷിയായ കോൺഗ്രസിന് രണ്ടിടത്താണ് ജയിക്കാനായത് ഡിഎംകെ യും കക്ഷിരഹിതരും ആറ് സീറ്റ് വീതം നേടി ദേദ പുതുച്ചേരി സംസ്ഥാനത്തിന്റെ ഭാഗമായ മാഹി നിയോജക മണ്ഡലത്തിൽ ഐക്യ മതേതര പുരോഗമന സഖ്യം സ്ഥാനാർത്ഥി രമേഷ് പറമ്പത്ത് വിജയിച്ചു ഇടതു പിന്തുണയോടെ മത്സരിച്ച കക്ഷി രഹിതൻ എൻ

രുര ഉപതെരഞ്ഞെടുപ്പുകളിൽ ബിജെപിയെ വിജയിപ്പിച്ച കർണാടക മഹാരാഷ്ട്ര ഗുജറാത്ത് രാജസ്ഥാൻ ഉത്തരാഖണ്ഡ് സംസ്ഥാനങ്ങളിലെ വോട്ടർമാർക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നന്ദി അറിയിച്ചു ജനങ്ങളുടെ ക്ഷേമത്തിനായി ബിജെപി പ്രവർത്തിക്കുമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു രുഭ കേരളത്തിൽ ബിജെപിക്കുണ്ടായ പരാജയം അംഗീകരിക്കുന്നുവെന്ന് പാർട്ടി ദേശീയ അധ്യക്ഷൻ ജെ

ദേദ പിണറായി വിജയനു ലഭിച്ച അംഗീകാരമാണ് എൽഡിഎഫ് തരംഗമെന്ന് എസ്

യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു അടിസ്ഥാന വർഗ്ഗം ഒറ്റക്കെട്ടായി എൽഡിഎഫിനൊപ്പം നിന്നു സീറ്റുകൾ നേടാനായില്ലെങ്കിലും എൻഡിഎ മികച്ച പ്രകടനം തന്നെയാണ് കാഴ്ച്ചവെച്ചതെന്നും വെള്ളാപ്പള്ളി ആലപ്പുഴയിൽ പറഞ്ഞു

ജാഥകളും ജനങ്ങൾ കൂട്ടംകൂടുന്നതും കർശനമായി നിരോധിച്ചിട്ടുണ്ട് ദേദ കണ്ണൂർ ചക്കരക്കല്ലിന് സമീപം ഓടത്തിൽ പീടികയിൽ ഇന്നലെ രാത്രി വീടിന് നേരെ ബോംബേറുണ്ടായി നിർത്തിയിട്ട വാഹനങ്ങൾക്കു നേരെയും അക്രമമുണ്ടായി

ബാലകൃഷ്ണ പിള്ള അന്തരിച്ചു പുലർച്ചെ അഞ്ച് മണിയോടെ കൊട്ടാരക്കരയിലെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അദ്ദേഹത്തിന്റെ അന്ത്യം

ഏറെ നാളുകളായി വാർധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് ചികിത്സയിലായിരുന്നു

അച്യുതമേനോൻ ഇ

നായനാർ കെ കരുണാകരൻ എ

ദീർഘകാലം ഗതാഗത മന്ത്രിയായിരുന്ന അദ്ദേഹം എക്സൈസ് ജയിൽ വൈദ്യുതി വകുപ്പുകളും കൈകാര്യം ചെയ്തിട്ടുണ്ട് ദ്ദേ ഇന്ത്യ ചൈന അതിർത്തിയിൽ ഹിമപാതത്തിൽ അകപ്പെട്ട് വീരമൃത്യുവരിച്ച സൈനികൻ ചവറ കൊട്ടുകാട് സ്വദേശി എ

കഴിഞ്ഞ ദിവസം രാത്രി തിരുവനന്തപുരത്തെത്തിച്ച ഭൌതിക ശരീരം മിലിട്ടറി ആശുപത്രിയിൽ സൂക്ഷിച്ചശേഷം ഇന്നലെ രാവിലെയാണ് ചവറ കൊട്ടുകാട്ടെ വീട്ടിൽ എത്തിച്ചത് ദര ഐ പി എൽ ക്രിക്കറ്റിൽ ഡൽഹി ക്യാപിറ്റൽസിന് ജയം അഹമ്മദാബാദിലെ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ നടന്ന മത്സരത്തിൽ ഏഴ് വിക്കറ്റിനാണ് ഡൽഹി പഞ്ചാബ് കിങ്സിനെ പരാജയപ്പടുത്തിയത്

ഇന്ന് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിനെ നേരിടും

സർവകക്ഷിയോഗ തീരുമാന പ്രകാരം ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങൾ തെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപന ദിവസമായ നിരത്തിലിറങ്ങുന്നത് ഇന്നലെ ജനങ്ങൾ നിരുത്സാഹപ്പെടുത്തിയതായി അദ്ദേഹം വിലയിരുത്തി ദേദ കോവിഡ് വ്യാപനം കണക്കിലെടുത്ത് പത്തനംതിട്ട ജില്ലയിൽ ഇന്നും കർശന നിയന്ത്രണങ്ങൾ തുടരുമെന്ന് ജില്ലാ കലക്ടർ അറിയിച്ചു